മുത്തലാഖ് ബിൽ ഇന്ന് രാജ്യസഭയിൽ

കർണാടകയിൽ പുതിയ സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കും

മേഴ്സിക്കുട്ടിയമ്മ പിതൃമോക്ഷ പുണ്യം തേടി നാളെ കർക്കടക വാവുബലി ൾ ൽ ൾ ഫയലുകളിൽ വേഗത്തിലും കൃത്യമായും തീരുമാനമെടുക്കുന്ന സംസ്കാരത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു ചുവപ്പ് നാടയിൽ നിന്ന് വലിയ തോതിൽ നമുക്ക് മോചനം നേടാൻ കഴിയണമെന്നും നാടിന്റെ വികസന പ്രക്രി യയിൽ അണിചേർന്ന് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തമാണ് മധ്യ നിര ഉദ്യോഗസ്ഥർക്കുള്ളതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഭരണയന്ത്രത്തെ ചലിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് മർമ്മ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു സെക്രട്ടേറിയറ്റിലെ കെട്ടിക്കി ടക്കുന്ന ഫയലുകൾ സമയപരിധി നിശ്ചയിച്ച് തീർപ്പാക്കുന്നത് സംബ ന്ധിച്ച് ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായി രുന്നു മുഖ്യമന്ത്രി ഒരു ഫയൽ മുന്നിലെത്തിയാൽ വച്ച് താമസിപ്പിക്കുന്നത് വിക സന പ്രക്രിയയെ തടസപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആശ്വാസം ഇല്ലാതാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാർഷിക വൃവ സായിക മേഖലയിലെ മുരടിപ്പാണ് പൊതുവായി വികസനത്തിന് തട സമായി നിൽക്കുന്നത് ഇതിന് മാറ്റം വരണമെങ്കിൽ പശ്ചാത്തല സൌക രൃങ്ങളിൽ വലിയ കുതിപ്പ് ഉണ്ടാകണമെന്നും അതിന് സമയബന്ധി തമായി പദ്ധതികൾ പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുത്തലാഖ് ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും കഴിഞ്ഞ ആഴ്ച്ച ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു

ഇന്ന് സഭയിൽ ഹാജരാകാൻ ബിജെപി അംഗങ്ങൾക്ക് വിപ്പ് നൽകി യിട്ടുണ്ട് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബിൽ ലോക്സഭ പാസാക്കി മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്തൃക്ക് പകരം ദേശീയ മെഡിക്കൽ കമ്മീഷൻ എന്ന പുതിയ സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് ബിൽ അവതരിപ്പിച്ചത് മെഡിക്കൽ കൌൺസിൽ ബിൽ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളെ മറികടക്കില്ലെന്ന് ആരോഗൃമന്ത്രി ഡോ ഹർഷ് വർദ്ധൻ അംഗങ്ങൾക്ക് ഉറപ്പ് നൽകി കോൺഗ്രസ് ഡിഎംകെ തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്കിനിടെ ശബ്ദവോട്ടോടെയായിരുന്നു സഭ ബിൽ പാസാ ക്കിയത്

ബില്ലിലെ ന്യൂനതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് എം

രാഘവൻ എംപി ചർച്ചയിൽ ആവശ്യപ്പെട്ടു

പെൺകുട്ടി സഞ്ചരിച്ച കാറിൽ റായ്ബറേലിയിൽ ഞായറാഴ്ച്ച നമ്പർ പ്ലേറ്റ് മറച്ച ട്രക്ക് ഇടിച്ചായിരുന്നു അപകടം സംഭവത്തിൽ ഗൂഡാലോചനയുണ്ടെന്ന് പത്തൊമ്പതുകാരിയുടെ ബന്ധുക്കൾ ആരോ പിച്ച സാഹചര്യത്തിലാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത് പ്രതിപക്ഷം പാർലമെന്റിൽ ഇന്നലെ സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പീഢനക്കേസിൽ പ്രതിയായ സെങ്കറിനെ കഴിഞ്ഞ വർഷം ഏപ്രി ലിൽ അറസ്റ്റ് ചെയ്തിരുന്നു അതിനിടെ സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റ് കേന്ദ്രത്തോട് ആവശൃപ്പെട്ടു

സുപ്രീം കോടതിയുടെ നേതൃത്വ ത്തിൽ ഇതേകുറിച്ച് അന്വേഷിക്കണമെന്ന് പാർട്ടി വക്താവ് മനീഷ് തിവാരി ന്യൂഡൽഹിയിൽ പറഞ്ഞു കർണാടകയിൽ പുതിയ സ്പീക്കറെ നാളെ തെരഞ്ഞെടുക്കുമെന്ന് സംസ്ഥാന നിയമസഭാ സെക്രട്ടറി എം

വിശാലാക്ഷി അറിയിച്ചു സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ന് നാമനിർദേശ പത്രിക സമർപ്പിക്കണ മെന്നും അവർ പറഞ്ഞു യെദിയൂരപ്പ ഗവൺമെന്റ് വിശ്വാസവോട്ട് നേടിയയുടൻ സ്പീക്കർ കെ

രമേഷ് കുമാർ രാജിവെച്ചിരുന്നു

സ്പീക്കറുടെ തീരു മാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രമേഷ് ജാർക്കിഹോളിയും മഹേഷ് കുമത്തലിയുമാണ് സൂപ്രീം കോടതിയിൽ ഹർജി നൽകിയത് സംസ്ഥാനത്ത് തീരസംരക്ഷണത്തിന് കടലൂർ മാതൃക നടപ്പാക്കു മെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു തിരുവനന്തപുരം ആന യറ കാർഷിക മൊത്തവിതരണ കേന്ദ്രത്തിൽ മത്സ്യസംഭരണ കേന്ദ്രവും ഫിഷ് മാർട്ടും അന്തിപ്പച്ച മൊബൈൽ ഫിഷ്മാർട്ടും ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഓഫ്ഷോർ ബ്രേക്ക് വാട്ടർ സംവി ധാനത്തിലൂടെ പൂന്തുറ മുതൽ ശംഖുമുഖം വരെ തീരമേഖല തിരി ച്ചുപിടിക്കുമെന്നും മന്ത്രി അറിയിച്ചു മത്സൃത്തൊഴിലാളികൾക്കിടയിലെ ്യുവജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഓൺലൈൻ മത്സ്യവിപണന മേഖലയിലേക്ക് കൊണ്ടു വരുന്നത് മത്സ്യഫെഡിന്റെ പരിഗണനിയാണെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാത്തതും ലൈസൻസില്ലാത്തതുമായ വള്ളങ്ങൾ കട ലിൽ പോയി മത്സൃത്തൊഴിലാളികളുടെ ജീവൻ അപകടത്തിൽപെ ട്ടാൻ ഉടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറ ഞ്ഞു

ഇവരിൽ പലരുടേയും നില ഗുരുതരമായതിനാൽ മരണ സംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് പാക് കേന്ദ്രങ്ങൾ റാവൽപി ണ്ടിയിൽ അറിയിച്ചു പതിവ് പരിശീലന പറക്കലിനിടെ ഇന്ന് പുലർച്ചെയായിരുന്നു അപ കടം കണ്ണൂർ സിറ്റിക്കടുത്ത് ആദികടലായിയിൽ വെട്ടേറ്റ് ഒരാൾ മരി ച്ചു

നേരത്തെ ഇയാൾ മുസ്ലീം ലീഗ് പ്രവർത്തകനായിരുന്നു പിതൃമോക്ഷ പുണൃം തേടി നാളെ കർക്കടക വാവുബലി മുൻഗാ മികളുടെ മോക്ഷത്തിനായി പിൻതലമുറയുടെ പ്രാർത്ഥന നിറയുന്ന അമാവാസി നാൾ വാവുബലി തർപ്പണത്തിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി

തലസ്ഥാനത്ത് ശംഖുമുഖം തിരുവല്ലം വർക്കല പാപനാ ശം അരുവിക്കര എന്നിവിടങ്ങളിലാണ് പ്രധാന ബ്ലിതർപ്പണ കേന്ദ്ര ങ്ങൾ ആലുവാ മണപ്പുറം തിരമുല്ലവാരം തിരുനാവായ തിരുനെല്ലി എന്നിവിടങ്ങളിലും ബലിതർപ്പണം നടക്കും ബലിതർപ്പണ കേന്ദ്ര ങ്ങളിലേക്ക് കെഎസ്ആർടിസി പുലർച്ചെ ്മുതൽ പ്രത്യേക സർവ്വീ സുകൾ നടത്തും തെക്കൻ കാശി എന്നറിയപ്പെടുന്നു തിരുനെല്ലി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി

ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് നാളെ വൈകുന്നേരം അഞ്ച് മണി മുതൽ മറ്റന്നാൾ രാവിലെ ആറ് മണി വരെ ബലി തർപ്പണത്തിന് സജീകരണങ്ങൾ ഒരുക്കിയതായി പ്രക്കൽ ബലിതർപ്പണ സമിതി അറിയിച്ചു ബലി തർപ്പണത്തിനെത്തുന്നവർക്ക് തിലഹോമം നടത്തുന്നതിനും സൌക രൃങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ പട്ടികജാതി കോളനികൾ വികസിപ്പിക്കുന്നതി നായി നടപ്പിലാക്കുന്ന അംബേദ്ക്കർ ഗ്രാമവികസന പദ്ധതിക്ക് എട പ്പാൾ ഗ്രാമപഞ്ചായത്തിലെ എലിയത്ത് തറ പട്ടികജാതി കോളനിയിൽ തുടക്കമായി മന്ത്രി ഡോ

ജലീൽ ഉദ്ഘാടനം ചെയ്തു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത ഹൌസ് ബോട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രാമ ചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു

അശാസ്ത്രീയമായി നിർമ്മിച്ച് സർവ്വീസ് നട ത്തുന്ന ബോട്ടുകളാണ് പലപ്പോഴും അപകടങ്ങളിൽപ്പെടുന്നതെന്ന് മന്ത്രി പറഞ്ഞു ജനമൈത്രി പൊലീസ് കേരളത്തിന്റെ സംഭാവനയെന്ന് മന്ത്രി രാമ ചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പൊലീസുകാരെക്കുറിച്ച് വിവാദങ്ങൾ ഉയരുന്ന സാഹചരൃത്തിൽ പൊലീസുകാർക്കിടയിൽ മനുഷൃതവും സംസ്കാരവുമുണ്ടെന്ന് തെളിയിക്കാൻ ജനമൈത്രി പൊലീസിനാ യെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ കയ്പമംഗലത്ത് മൂന്ന് നിർധന കുടുംബങ്ങൾക്കായി കെയർ ആൻഡ് ഷെയർ പ്രവാസി കൂട്ടായ്മ യുടെയും ജനമൈത്രി പൊലീസിന്റെയും ക്ലബുകളുടെയും സഹക രണത്തോടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലായിരിക്കെ മരണപ്പെട്ട വാഗ മൺ സ്വദേശി രാജ്കുമാറിന്റെ മൃതദേഹം വീണ്ടും പോസ്റ്റമോർട്ടം നടത്തി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ അന്വേഷണ കമ്മീ ഷൻ ജസ്റ്റിസ് കെ നാരായണ കുറുപ്പിന്റെ സാന്നിധൃത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ കാണാത്ത പരിക്കു കൾ കണ്ടെത്തിയതായി സൂചനയുണ്ട് നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ ഒന്നാം പ്രതിയാക്കേണ്ട ഇടുക്കി മുൻ എസ്പിയെ പിണറായി ഗവൺമെന്റ് ഉദ്യോഗ കയറ്റും നൽകി സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് പി

തോ മസ് എംഎൽഎ പറഞ്ഞു ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ക്രൈബ്രാഞ്ച് സംഘത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരു ന്നുണ്ടെന്നും ഈ സംഘം അന്വേഷിച്ചാൽ സത്യം പുറത്തുവരുന്ന കാര്യം സംശയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യൂത്ത് കോൺഗ്ര സിന്റെ നേതൃ ത്വത്തിൽ തൊടു പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു പി

തോമസ്

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

ആദിവാസി വിഭാഗക്കാരനായ കുമാറിന്റെ മരണത്തിന് കാരണം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വംശീയ അധിക്ഷേപമാണോ എന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അഗളി കുന്നൻ ചാള ഊരിലെ കുമാറിനെ ലക്കിടി റയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനരോഷം ശക്തമായതിനെത്തുടർന്ന് തിരുവനന്തപുരം അമ്പൂ രി വധക്കേസിലെ പ്രതി അഖിലിനെ തെളിവെടുപ്പ് പൂർത്തിയാക്കാ തെ പൊലീസ് തിരിച്ചുകൊണ്ടുപോയി തെളിവെടുപ്പിനായി ഇന്നലെ അഖിലിന്റെ വീട്ടിലെത്തിച്ചപ്പോൾ രോഷാകുലരായ നാട്ടുകാർ ഇയാളെ കല്ലെറിയുകയായിരുന്നു ഇതോടെ തൊണ്ടിമുതലുകൾ പൂർണമായും ശേഖരിക്കാതെ പൊലീസ് സംഘം ഇയാളെ തിരിച്ചുകൊണ്ടുപോവു കയായിരുന്നു കോഴിക്കോട് കുറ്റ്യാടിയിൽ അമ്മയുടെ കൈയിൽ നിന്ന് റോഡി ലേക്ക് വീണ് ഒന്നര വയസ്സുകാരൻ മരിച്ചു പേരാമ്പ്ര എരവട്ടൂർ കൈപ്രം ഗണപതിക്കണ്ടി രാഗേഷിന്റെ മകൻ ഹരിശങ്കറാണ് മരിച്ച ത് പനി ബാധിച്ച കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ച് മടങ്ങുമ്പോൾ അ മ്മ പ്രിയയെ ഓട്ടോറിക്ഷ ഇടിച്ചതിനെത്തുടർന്ന് കുഞ്ഞ് റോഡിൽ വീഴുകയായിരുന്നുവെന്ന സംശയത്തിൽ പൊലീസ് അന്വേഷണം തു ടങ്ങി

അമ്പാട്ട് പറമ്പ് സ്വദേശികളായ മഹേഷ് രമേഷ് എന്നിവരാണ് മരിച്ചത്

ഞായറാഴ്ച്ചയായിരുന്നു അപ കടം താനൂരിനും പരിപ്പനങ്ങാടിക്കുമിടയിൽ ഈ മാസം ആറിന് റെയിൽവെ ട്രാക്കിൽ കണ്ടെത്തിയ വിള്ളൽ അധികൃതരെ യഥാസ

വേലായുധൻ എ

പ്രഭാകരൻ എന്നിവ രെയാണ് ഡിവിഷണൽ റെയിൽവെ മാനേജർ പ്രതാപ് സിങ്ങ് ഷമി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ കൃാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചത് സംസ്ഥാനത്തിന്റെ അതിഥിയായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാന ത്താവളത്തിലെത്തിയ സ്വിറ്റ്സർലാന്റ് പാർലമെന്റുംഗം നിക്കൊളാസ് സാമുവൽ ഗൂഗറിന് ഊഷ്മള വരവേൽപ്പ് നൽകി താൻ പിച്ചവെച്ചു നടന്ന മണ്ണിലേക്ക് തിരികെയെത്താനായത് വൈകാരികത നിറഞ്ഞ അനുഭവമാണെന്ന് നിക്കൊളാസ് സാമുവൽ പറഞ്ഞു